ജെ

ടി ജലീലിനെ എൻ ഐ എ കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം

ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ് വർദ്ധൻ കോവിഡ് പ്രതിരോധത്തിനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെപ്പറ്റി നടത്തിയ പ്രസ്താവനയിൽ ഇന്ന് രാജ്യസഭയിൽ തുടർ ചർച്ച നടന്നു കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശിവസേന എട്ട്പി സഞ്ജയ് റൌത്ത് പറഞ്ഞു

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് എൻ

പി എം

സംസ്ഥാനങ്ങൾക്ക് തടസ്സമില്ലാതെ ഓക്സിജൻ ലഭ്യമാകുന്നുണ്ടെന്ന് കേന്ദ്രം ഉറപ്പുവരുത്തണമെന്ന് സി

കൊറോണ പ്രതിരോധ നടപടികളിൽ കേന്ദ്രത്തിനും ഉത്തർപ്രദേശ് ഗവൺമെന്റിനും ഗുരുതര വീഴ്ച പറ്റിയതായി ആം ആദ്മി പാർട്ടി എം

കോവിഡ് പരിശോധനാ സൌകര്യത്തിലും പി

ആർ കോൺഗ്രസ്സിലെ വിജയസായ് റെഡ്ഡിടി ഡി പി യിലെ കെ രവീന്ദ്രകുമാർ ബി

പി യിലെ വീർസിങ് തമിഴ്മാനില കോൺഗ്രസിലെ വാസൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഭാരത് നെറ്റ് പദ്ധതിക്കു കീഴിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർഥികൾക്ക് പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് ആണ് ഇക്കാര്യം അറിയിച്ചത്

പെൺകുട്ടികളുടെ വിവാഹപ്രായം അമ്മയാകാൻ യോജിച്ച പ്രായം മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുക പോഷകാഹാരം ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങളാണ് കർമ്മസേന പരിശോധിക്കുന്നത്

രാജ്യസഭയിൽ ഇന്ന് രേഖാമൂലം നൽകിയ മറൂപ്പടിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഡോ

സിവിൽ സർവീസ് പരീക്ഷയുടെ പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ ചിന്തിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന സേവാ സപ്താഹ് പരിപാടികൾക്കു ബിജെപി തുടക്കം കുറിച്ചു

ജന്മദിനത്തോടനുബന്ധിച്ച് ഒട്ടേറെ വ്യക്തികൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കേന്ദ്ര മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ലോക നേതാക്കൾ തുടങ്ങിയവർ ശ്രീ

റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനും പ്രധാനമന്ത്രിക്ക് ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ചു നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉൌട്ടിയുറപ്പിക്കാൻ തുടർന്ന് പരിശ്രമിക്കുമെന്നു ഉറപ്പു നൽകി

ടി ജലീലിനെ എൻ ഐ

കൊച്ചിയിലെ ഓഫീസിൽ വൃച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്

ഹരിപ്പാട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന ഭയം മൂലമാണ് മുഖ്യമന്ത്രി മന്ത്രി ജലീലിന്റെ രാജി ആവശ്യപെടാത്തത് മന്ത്രി ജലീൽ കുറ്റബോധം കൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു

ദേശീയ സൈബർ സെക്യൂരിറ്റി കോഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്

ഇന്ത്യൻ പൌരന്മാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ വിദേശകമ്പനികൾ ചോർത്തുന്നത് ഗൌരവമായാണ് കേന്ദ്രം കാണുന്നത്

കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ വൃക്തമായ പദ്ധതികളുമായാണ് ഇന്തൃ മുന്നോട്ടു പോകുന്നത്

ഇന്നലെ ത്രിരാഷ്ട്ര വിദേശകാര്യമന്ത്രിമാരുടെ വെർച്ചൽ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ അദ്ധ്യക്ഷത വഹിച്ചു

പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയായിരുന്ന സുരക്ഷാസേനയ്ക്കു നേരെ ഭീകരർ വെടിയുതിർത്തോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറ്റുമൂട്ടർ ഇപ്പോഴും തുടരുകയാണ്